രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ബംഗളൂരുവിൽ എയ്റോ ഇന്ത്യ വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

സൈനൃം തടവിലാക്കിയ മ്യാൻമർ നേതാവ് ആങ് സാൻ സൂചിയെ മോചിപ്പിക്കണമെന്ന് യു

എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ

നാളെ മടിക്കേരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ ജനറൽ തിമയ്യ മ്യൂസിയം നാടിനായി സമർപ്പിക്കും

വിദൂര ദൃശ്യ സ്ട്വാദ ്സംവിധാനത്തിലൂടെ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര നീതിന്ട്രിയ് വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് ഗുജറാത്ത് മുഖ്യമുത്തി വിജയ് രൂപാണി സുപ്രീഠ കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ നീതിന്യായ് രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവർ സംബന്ധിക്കും

മരുന്നുകളും വാക്സിനും ഉല്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ആഫ്രിക്കയിലെ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു

ബി ഐ ഗവർണ്ണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സാമ്പത്തികനയ സമിതി യോഗവും ഇന്ന് സമാപിക്കും മുമ്പ് ചേർന്ന മൂന്ന് അവലോകന യോഗങ്ങളിലും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയിരുന്നില്ല

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം കണ്ടെത്തിയത് എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ്

ജെ

വിലയിരുത്തി ഇന്ത്യയുടെ ജനാധിപത്യ വൃവസ്ഥയ്ക്ക് വിദേശിയരുടെ സാക്ഷൃപത്രം ആവശ്യമില്ലെന്നും പാർട്ടി വക്താവ് ഗൌരവ് ഭാട്ടിയ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എസ് പ്രസിഡന്റ് യുദ്ധം അവസാനിക്കേണ്ടതുണ്ടെന്നും എന്നാൽ പരമാധികാരത്തെയും ഭൂപ്രദേശത്തെയും പ്രതിരോധിക്കുന്നതിനായി സൌദി അറേബ്യയ്ക്ക് നൽകുന്ന സഹായ സഹക്ടുരണങ്ങൾ തുടരുമെന്നും തന്റെ ആദ്യ വിദേശനയ പ്രഖ്യാപ്പിനി പ്രസംഗത്തിൽ ജോ ബൈഡൻ പറഞ്ഞു ജർമനിയിൽ ്വിന്യസിച്ച അമേരിക്കൻ സേനയുടെ പിന്മാറ്റം കൃതിക്കുന്നിർത്തിവയ്ക്കുമെന്നും സ്വവർഗ്ഗനുരാഗികളും ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്ക് എല്ലാ പിന്തൂണയും നൽകുമെന്നും പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു

തിങ്കളാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയ നൊബേൽ ജേതാവും മ്യാൻമർ നേതാവുമായ സൂചിയെ പിന്നെ ആരും കണ്ടിട്ടില്ല കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടാരോപിച്ച് സൈനിക കമാൻഡർ മിൻ ആങ് ഹ്ലെയ്ങ് അധികാരമേറ്റപ്പോൾ ജനാധിപത്യ രാഷ്ട്രമെന്ന മ്യാൻമറിന്റെ പരിവർത്തനത്തിനാണ് മങ്ങലേറ്റത്

രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കുമാണ് സാമൂഹ്യ മാധ്യമം തടയുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതിനിടെ ഉപരോധങ്ങൾക്ക് മറുപടിയായുള്ള നടപടിയുമായി മുന്നോട്ടു പോകാൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ അറിയിച്ചു

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരുഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കേരളത്തിലെത്തുക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറടക്കം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തും

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

അഴിമതിയിൽ എൽ

എഫും യു ഡി

കേരളത്തിൽ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ശ്രീ നദ്ദ തേക്കിൻകാട് മൈതാനത്ത് പൊതുസമ്മേളനത്തിൽ പറഞ്ഞു

സർക്കാർ അവധി ദിവസങ്ങളൊഴികെയുള്ള എല്ലാ ശനിയാഴ്ചകളിലും ചടങ്ങ് നടക്കും

കോവിഡ് പശ്ചാത്തലത്തൂിൽ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ക്ലബ്ബ് അംഗങ്ങൾക്ക് മാത്രമായിരിക്കും ടിക്കറ്റുകൾ ലഭ്യമാക്കുക

ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം സമനിലയിൽ ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ രണ്ട് ഗോളും പെനാലിറ്റിയിൽ നിന്ന് വന്നപ്പോൾ ജെസുരാജിന്റെ തകർപ്പൻ ഗോളും നോർത്ത് ഈസ്റ്റിന്റെ തന്നെ സെൽഫ് ഗോളുമാണ് ഗോവയ്ക്ക് തുണയായത്